പുനരുജ്ജീവനവും ചർച്ചാ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ദ്ഘാടനം ചെയ്യുന്നു

സുനാമിയിൽ മരണസംഖ്യിഅമ്പത് കടന്നു ഹൃദയാരോഗൃ സ്റ്ദേശം എടുത്തുകാട്ടി ഇന്ന് ലോക ന് ഹൃദയ ദിനം

മുന്നറിയിപ്പ് പ്രധാനമന്ത്രി അക്കാദമിക രംഗത്തെ നേതൃത്വവും വിദ്യാഭ്യാസ മേഖലയിലെ പുനരുജ്ജീവനവും എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു വെല്ലുവിളികളും അക്കാദമിക രംഗവും വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണങ്ങളും ആണ് സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നടപടികളുടെ തുടർ നടപടിയായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്

മൻ കി ബാത്ത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ ശ്രീ

ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും പരിപാടി ലഭ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്നുതന്നെ മൻ കി ബാത്തിന്റെ മലയാളം പരിഭാഷ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു

സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തീരദേശ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യമേഖലയിലെ ആരോഗ്യകേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു

ഒട്ടേറെ വീടുകൾ ഒഴുകിപ്പോയി പ്രദേശത്തുള്ള വാർത്താ വിനിമയ ബന്ധം തകരാറിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവരുന്നതേയുള്ളൂ

ഒരു വാഗ്ദാനം എന്റെ ഹൃദയം

ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോ

ഗിരിജ ആകാശവാണിയോട്

പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം

ഋഷിരാജ് സിംഗ് പറഞ്ഞു

ഹർഷം ജെറിയാട്രിക് പദ്ധതിയിലൂടെ വീടുകളിലോ ആശുപത്രികളിലോ മുതിർന്നവർക്ക് പരിപാലനം ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

വിശാഖപട്ടണംഅഹമ്മദാ്ബാദ് ഭുവനേശ്വർ എന്നിവിടങ്ങളിലാണ് നിലവിൽ ചുഴലിക്കാറ്റ് കേന്ദ്രങ്ങളുളളത്

കപ്പലുകൾക്കുള്ള കാലാവസ്ഥാ അറിയിപ്പുകൾ തുറമുഖങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുളളമുന്നറിയിപ്പുകൾ വ്യോമ ഗതാഗതത്തിനുളള കാലാവസ്ഥാ വിവരങ്ങൾ എന്നിവ ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകും

തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി പൊന്നാനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ തീരപ്രദേശങ്ങളിൽ വേലിയേറ്റ സമയങ്ങളിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയും സ്പ്രിങ് ടൈഡ് ന്റെയും സംയുകത ഫലം ആണിത് മീൻപിടുത്തക്കാർക്കും തീരദേശനിവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി

കഴിഞ്ഞ ദിവസം മഴയെത്തുടർന്നൂണ്ടായ് അപകടങ്ങളിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തു

നഗരത്തിലെ പാട്ടുരായ്ക്കൽ വിയ്യൂർ ലാലൂർ ചേറൂർ ഒല്ലൂർ പൂച്ചട്ടി തുടങ്ങി നിരവധി മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു

രാമകൃഷ്ണൻ പദ്ധതികളും സേവനങ്ങളും ഫലപ്രദമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ചിട്ടയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി സെക്രട്ടറിയേറ്റിൽ വിളിച്ചുചേർത്ത തൊഴിൽ വകുപ്പു ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ വകുപ്പിന്റെ പ്രവർത്തനവും മന്ത്രി വിലയിരുത്തി

വിതരണോത്ഘാടനം ഇന്ന് വൈകീട്ട് കഴനി ചുങ്കത്ത് മന്ത്രി എ

രോഗികളുടെ നീണ്ട കാത്തിരിപ്പു ഒഴിവാക്കാൻ ഓൺലൈൻ ഒ

ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

പതിമൂന്ന് മുതിർന്നു

എം

നാളെ തുമ്പമണ്ണിൽ ആന്റോ ആന്റണി എം പി പരിപാടികൾ ഉൽഘാടനം ചെയ്യും

വെബ്സൈറ്റിൽ ലഭിക്കും